ഇന്ത്യാ യു എസ്

ജമ്മു കാശ്മിരിലെ സ്ഥിതിഗതികൾ ന് വിലയിരുത്താനായി യൂറോപ്യൻ യൂണിയനിലേയും ഗൾഫ് രാജ്യങ്ങളിലേയും ാം സംഘം ശ്രീനഗറിലെത്തി

നിർമ്മിക്കാനുള്ള പണം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആഡംബര ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ വക മാറ്റിയെന്ന് സി എ ജി റിപ്പോർട്ട്

സുരക്ഷിതവും ഫലപ്രദവുമായ കീടനാശിനികൾ ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കീടനാശിനി പരിപാലന നിയമം ആവിഷ്ക്കരിക്കുന്നത് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ര ാംഘട്ടത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനുമായി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കരാർ ഭേദഗതി ചെയ്യുന്ന നടപടി ക്രമത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി

വിശിഷ്ട അതിഥികൾക്ക് ഇന്ത്യ അവ്വിസ്മരണീയമായ വരവേൽപ്പ് നൽകുമെന്ന് ശ്രീ

ഏറെ പ്രത്യേകതകളുള്ള ഈ സന്ദർശനം ഇന്ത്യെ യു എസ്

ജനാധിപത്യത്തോടും വികസ്വരത്യോടും ഇരു രാജ്യങ്ങളും പൊതുവായ പ്രതിബദ്ധത പങ്ക്ുവയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും യു

പൂനെയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റിന്റെ സുവർണ്ണ ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നതിനൊപ്പം മികച്ച സ്ഥിരതയും നൽകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു

ശ്രീനഗറിലെ വൃവസായ വാണിജൃ പ്രമുഖരുമായി സംഘം ആശയവിനിമയം നടത്തുകയാണ് മോശം കാലാവസ്ഥ കാരണം വടക്കൻ കാശ്മിരിലെ ബാരമുള്ളയിൽ നിശ്ചയിച്ചിരുന്ന സന്ദർശനം മാറ്റിവച്ചാണ് സംഘം ശ്രീനഗർ സന്ദർശിക്കുന്നത് നാളെ ജമ്മു സുന്ദർശിക്കുന്ന സംഘം ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും

വെങ്കയ്യ നായിഡു വിയറ്റ്നാം വൈസ് പ്രസിഡന്റ് ഡാങ് തായ് നോക്ക് തിങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും ഡാങ് കൂടിക്കാഴ്ച നടത്തും നാളെ അദ്ദേഹം ബോധ് ഗയ സന്ദർശിക്കും

എൽ എ മാർ പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു തുടർന്ന് ശ്രീ

നിയമപ്രകാരം ഇത്തരത്തിലുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എടുത്തു കളയാൻ പറ്റില്ലെന്ന് ഹർജ്ജിക്കാർ വാദിച്ചു ജനപ്രാതിനിധ്യ നിയമ പ്രകാരമുള്ള വോട്ടവകാശവും നിയമപരമായ നിയന്ത്രണങ്ങളും ബഞ്ച് നിരീക്ഷിച്ചു

സിഎജി റ്റിപ്പോർട്ട് ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു ഇക്കാര്യത്തിൽ സംസ്ഥാന പൊലീസ് മേധാവിയുടെ ഇടപെടലു ായതായും റിപ്പോർട്ടിൽ പരാമർശമു ്

ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ വാങ്ങിയപ്പോഴും മാർഗനിർദ്ദേശവും നടപടിക്രമവും പാലിച്ചില്ലെന്നും സിഎജി കല ത്തി തിരുവനന്തപുരം എസ്

റിപ്പോർട്ടിലെ പ്രധാന പരാമർശം

ലഹരി മരുന്ന് കടത്തലുമായി ബന്ധപ്പെട്ട് ഉയർന്ന് വരുന്ന ഭീഷണികൾ നേരിടാൻ എല്ലാ അംഗരാജ്യങ്ങൾക്കും സമ്മേളനം അവസരം നൽകുമെന്നും ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

പരിപാടിയ്ക്ക് കീഴിൽ മഹാരാഷ്ട്രയുടെ പങ്കാളി ഒഡീഷയാണ് ഒഡിയ സംസ്ക്കാരവും ജീവിത്യ രീതിയും വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വിവിധ പരിപാടികളാണ് ഒഡീഷയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്നത്

ഹർഷവർദ്ധൻ കേന്ദ്ര മാനവ വിഭവ ശേഷി മന്ത്രി രമേഷ് പ്രൊഖ്രിയാൽ നിഷാങ്ക് കേന്ദ്ര സഹമന്ത്രി അശ്വനി കുമാർ ചൌബെ എന്നിവർ ചേർന്നാണ് പദ്ധതിയ്ക്ക് തുടക്കം കുറിച്ചത്

കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ലിബിയയിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ആദ്യ ശ്രമമായിരിക്കും ഇത്

ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു